ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം

രാംനാഥ് കോവിന്ദ് കണ്ണുരിലെത്തി

സ്വാസ്ഥ്യകേന്ദ്രങ്ങൾ പ്ലൂവ്ർത്തന സജ്ജമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷ്വർദ്ധൻ

ലോക്സഭ നേരത്തെ ബിൽ പാസ്സാക്കിയിരുന്നു

ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സാഹചരൃത്തിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ ട്രസ്റ്റിയായി നിയമിക്കാമെന്നാണ് ബില്ലിലെ വൃവസ്ഥ ട്രസ്റ്റിയെ കാരണം കാണിക്കാതെ കാലാവധി പൂർത്തിയാക്കും മുൻപ് കേന്ദ്രഗവൺമെന്റിന് നീക്കാമെന്നും ബില്ലിലുണ്ട് ബില്ലിൽ രാഷ്ട്രീയമില്ലെന്ന് ഇത് അവതരിപ്പിച്ചു സ്റ്റ്സ്കാരിക മന്ത്രി പ്രഹ്ളാദ് പട്ടേൽ പറഞ്ഞു ഇനി പ്രസ്റ്റി സ്ക്രീസ്ട് ്ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കായിരിക്കുമെന്നും മന്ത്രി പ്പറഞ്ഞു

ഇന്ന് സഭ ചേർന്ന ഉടൻ തന്നെ ഇടത് എം പിമാരും ആം ആദ്മി അംഗങ്ങളും ചില കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് ജെ

എന്നാൽ രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡു ഇതിന് അവതരണാനുമതി നിഷേധിച്ചു

ഫീസ് വർദ്ധനയ്ക്കും കരട് ഹോസ്റ്റൽ മാനുവലിനും എതിരെയാണ് ജെ എൻ യു വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നത്

വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാകൃം വിളിച്ചു ജവഹർലാൽ നെഹ്റു സർവ്വകലാശാല വിഷയം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്ക് എസ്

സുരക്ഷ ഒഴിവാക്കിയത് എന്നിവ ചോദ്യോത്തരവേള നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശൃം കശ്മീരിൽ വീട്ടു തടങ്കലിൽ ഫാറൂഖ് അബ്ദുള്ളയെയും മറ്റ് ക്നേതാക്കളെയും ഉടൻ വിട്ടയയ്ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മദ്രാസ് ഐഐടിയിൽ ആത്മഹത്യ ചെയ്ത വദ്യാർത്ഥിനിപ്പ് ഫാത്തിമ ലത്തീഫിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡീ എം

ശബ്ദമുയർത്തി

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ഏഴിമല നാവിക അക്കാദമിയിലേക്ക് പോയി

രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ഷീജ

ന്യൂഡൽഹിയിൽ വൈദ്യശാസ്ത്ര ഉത്പന്നങ്ങളുടെ പ്രാപൃത എന്ന വിഷയത്തിലുള്ള ലോക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത്തരം ആരോഗ്യ സ്വാസ്ഥ്യകേന്ദ്രങ്ങൾ രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ സംരക്ഷണരംഗത്തെ ശക്തിപ്പെടുത്തുമെന്ന് ശ്രീഹർഷവർധൻ പറഞ്ഞു

ആരോഗൃ സംബന്ധിയായ കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണനയാണ് ഗവൺമെന്റ് നൽകുന്നത്

വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാടക ഗർഭധാരണം വിലക്കുന്നതാണ് ബിൽ

ദേശീയ വാടക ഗർഭധാരണ ബോർഡ് സംസ്ഥാന വാടകഗർഭധാരണ ബോർഡ് എന്നിവ കൊണ്ടുവരാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു

തൊഴിൽ ലഭ്യമാക്കാൻ നടപടികൾ ഊർജി്തമാക്കിയിട്ടുണ്ട്

ലോകസഭയിൽ എഴുതി തയ്യാറാക്കിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്ത്ര സഹമന്ത്രി ജി

പൂഞ്ച് ജില്ലയിലെ കല്ലർ മോർഹിൽ ഇന്നു രാവില്ല പ്പട്രോളിംഗ് നടത്തുകയായിരുന്ന സേനാ സംഘമാണ് പാത്യ്ക്ക് സമീപം ഐ ഇ

ഇതേതുടർന്ന് ദേശീയപാതയിൽ അല്പസമയ ത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു

വെടിനിർത്തൽ ലംഘനങ്ങൾ നടന്നപ്പോഴൊക്കെ സുരക്ഷാ സേനകൾ തക്കതായ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും ഗവൺമെന്റ് വെളിപ്പെടുത്തി

ഇത് വരെ നടന്ന നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കാൻ ഇന്ത്യയ്ക്കായിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി ഷ്ട്രീജ

മത്സര വേദി സംബന്ധിച്ച് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമിട്ടാണ് തീരുമാനമുണ്ടായത്

അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ സുരക്ഷിത അയൽപക്കം സ്യൂഷ്ടിക്കണമെന്നും അവർ പറഞ്ഞു

മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി ഷാഫി പറമ്പിൽ എം എൽ എ യും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു ഇതിൽ പ്രതിഷേധിച്ച് നാളെ കെ എസ് യു സംസ്ഥാന വൃാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും